വിദ്യാർത്ഥി പ്രതിനിധികളെ ചർച്ചയ്ക്ക് ക്ഷണിക്കാൻ ഡൽഹി ലഫ് ഗവർണറോട് ആഭ്യന്തരമന്ത്രി അമിത് ഷാ അക്രമ സംഭവങ്ങളിൽ റിപ്പോർട്ട് തേടി ആഭ്യന്തര മന്ത്രാലയം

വടക്കേ ഇന്ത്യയിൽ അതീവ ശൈത്യം തുടരുന്നു വരും ദിവസങ്ങളിൽ മഴയ്ക്കും മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യത

മുതിർന്ന പൊലീസ് ഉദ്യോഗസ്ഥനെ ക്കൊണ്ട് സംഭവം അന്വേഷിക്കണമെന്നും ഡൽഹി പൊലീസ് കമ്മീഷണറോട് ശ്രീ അമിത് ഷാ പറഞ്ഞു പൊലീസ് ജോയിന്റ് കമ്മീഷണർ തലത്തിലുളള ഉദ്യോഗസ്ഥൻ സംഭവം അന്വേഷിക്കുമെന്ന് ആഭൃന്തരമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ജെ എൻ യു വിലെ നിലവിലെ സ്ഥിതിഗതി സംബന്ധിച്ചും സമാധാനം പുനസ്ഥാപിക്കാൻ എടുത്ത നടപടിയെക്കുറിച്ചും ആഭ്യന്തര മന്ത്രാലയം ഡൽഹി പൊലീസിനോട് റിപ്പോർട്ട് തേടി

ക്യാമ്പസിലുണ്ടായ അക്രമം ദൌർഭാഗൃക്കർമാണെന്നും ഇത് ഗൌരവമായി എടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു്

ഗവൺമെന്റും ജെ എൻ യുട്ട് അധികാരികളും ഡൽഹി പൊലീസും നോക്കി നില്ക്കെ സർവക്ല്യാശ്ാലയിൽ ഉണ്ടായ ആക്രമം ലജ്ജാകരമെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു് കഴിഞ്ഞ ദിവസമാണ് രണ്ടുവിഭാഗം വിദ്യാർത്ഥികൾ ജെ എൻ യുവിൽ ആക്രമം അഴിച്ചു വിട്ടത്

വോയിസ് ബിജെപി നേതാക്കൾ മന്ത്രിമാർ തുടങ്ങിയവരാണ് മൂന്ന് കോടിയോളം ജനങ്ങളെ നേരിൽക്കണ്ട് ബോധവൽക്കരണം നടത്തുന്നത് ഡൽഹിയിലെ ലജ്പത് നഗറിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ പങ്കെടുത്തു

കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി പ്രകാശ് ജാവദേക്കർ നിർമ്മലാ സീതാരാമൻ യു പി മുഖ്യമന്ത്രി യോഗി ആദിതൃനാഥ് തുടങ്ങിയവർ ബോധവത്കരണ യജ്ഞത്തിന്റെ ഭാഗമായി നിയമവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണെന്ന് ജയ്പ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു രാജ്യത്തെ മുസ്ലീം സമൂഹത്തെ പൌരത്വ ഭേദഗതി നിയമം ഒരു രീതിയിലും ബാധിക്കില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ജി

ആന്ധ്രാ പ്രദേശിലെ തിരുപ്പതിയിൽ വീടുവീടാനന്തരം അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള ഗൃഹ സമ്പർക്ക് അഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോ ഓഡിനേറ്റർ ഇത്തര്ക് പ്രസ്താവനകൾ നടത്താൻ പാടില്ലെന്നും ഗവൺമെന്റ് ഇതിനു വിശ്ദ്ദീ്കരണം നല്കണമെന്നും ചീഫ് ജസ്റ്റിസ് എസ്

മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് എൻ ആർ സി കോഓഡിനേറ്റർ ഹിതേഷ് ദേവ് ശർമ്മയുടെ പ്രസ്താവന പരമോന്നതകോടതിയുടെ ശ്രദ്ധയിൽ പെടുത്തിയത്

നങ്കാന സാഹിബ് ഗുരുദാരയ്ക്ക് സമീപം നടന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് സിഖ് സമുദായാംഗത്തെ കൊലപ്പെടുത്തിയത് ഇത്തരം സംഭവങ്ങൾ അടിയന്തിരമായി അവസാനിപ്പിക്കാൻ നടപടിയെടുക്കണമെന്ന് ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു

മറ്റു രാജൃങ്ങളുടെ ആഭൃന്തര കാരൃങ്ങളിൽ ഇടപെടുന്നതിനു പകരം സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംരക്ഷിക്കാൻ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും വിദേശകാര്യമന്ത്രാലയം പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു

ഇന്ന് കൊച്ചിയിൽ തങ്ങുന്ന രാഷ്ട്രപതി നാളെ രാവിലെ ലക്ഷദ്വീപിലെ അഗത്തിയിലേക്ക് പോകും വ്യാഴാഴ്ച ഉച്ചയോടെ കൊച്ചിവഴി ശ്രീ

രാഷ്ട്രപതിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് കൊച്ചിയിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി

ഇതോടെ ലഫ്

ശർമ്മ ഫറൂഖ് ഖാൻ എന്നിവരാണ്ട് മറ്റ് രണ്ട് ഉപദേശകർ

നോയ്ഡയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം

യുറേനിയം സമ്പുഷ്ടീകരണ വിഷയത്തിൽ നിയന്ത്രണങ്ങൾ പാലിക്കില്ലെന്നും ഇറാൻ വൃക്തമാക്കി

സൈനിക മേധാവി ജനറൽ ഖാസിം സൊലൈമാനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇറാനിൽ സംഘർഷം നിലനിൽക്കുകയാണ് ഇന്നലെ നിരവധി പേർ ജനറൽ സൊലൈമാനിക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ ഇറാനിലെത്തി അതിനിടെ ജനറൽ സൊലൈമാനിയുടെ കൊലപാതകത്തെ തുടർന്നുള്ള പ്രതിസന്ധി പരിഹരിക്കാനും ആണവ കരാർ സംബന്ധിച്ച് ചർച്ച നടത്താനും യൂറോപ്യൻ യൂണിയൻ വിദേശ നയ വക്താവ്ട് ജോസഫ് ബോറൽ ഇറാൻ വിദേശകാരൃമന്ത്രി മൊഹമ്മദ് ജാവേദ് സ്ത്രീഫിനെ ബ്രസൽസ്സിലേക്ക് ക്ഷണിച്ചു നേരത്തെ ജനറൽ സൊര്ര്ല്പ്മാനിയുടെ കൊലപാതകത്തെ തുടർന്ന് വിദേശ സൈനൃം രാജ്യം പ്പിട്ണമെന്ന് ഇറാഖി പാർലമെന്റ് പ്രമേയം പാസാക്കി

മേഖലയിൽ സമാധാനം നിലനിർത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രദേശത്ത് സംഘർഷമല്ല ശാന്തതാണ് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു അറബ് സംസാര ഭാഷയുളള ആഫ്രിക്കൻ ഏഷ്യൻ രാഷ്ട്രങ്ങളുടെ സംഘടനയാണ് അറബ് ലീഗ്

ഇറാഖിലെ സംഭവവികാസങ്ങളിൽ അംഗരാഷ്ട്രങ്ങൾ അതീവ ആശങ്കയിലാണെന്ന് ഗൾഫ് കോർപ്പറേഷൻ കൌൺസിൽ ജനറൽ സെക്രട്ടറി അബ്ദുള്ളാത്തിഫ് ബിൻ അൽ സയാനി പറഞ്ഞു

ഒരു റിപ്പോർട്ട് ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് ഈ സേവനം ഒരുക്കിയത് ഇത്തരം സംവിധാനം നിലവിൽ വരുന്ന ഉത്തരേന്തൃയിലെ ആദ്യത്തെയും രാജ്യത്തെ അഞ്ചാമത്തെയും റെയിൽവേ സ്റ്റേഷനാണ് ഛണ്ഡീഗഡ് കാഴ്ചപരിമിതരായ യാത്രക്കാർക്ക് ഈ സൌകര്യം ഉപയോഗിച്ച് റെയിൽവേ സ്റ്റേഷനിലെ വിവിധ സേവനങ്ങളെക്കുറിച്ച് മനസ്സിലാ ക്കാൻ സാധിക്കും കൂടാതെ ബ്രെയ്ൽ ടാക്ടൈൽ മാപ്പ് ഉപയോഗിച്ച് അന്വേഷണ വിഭാഗം സ്റ്റേഷൻ മാസ്റ്റർ കാത്തിരിപ്പ് മുറികൾ ലിഫ്റ്റ് ശുചി മുറി തുടങ്ങിയ സേവന കേന്ദ്രങ്ങൾ മറ്റൊരാളുടെ സഹായമില്ലാതെ കാഴ്ച പരിമിതർക്ക് എളുപ്പത്തിൽ കണ്ടെത്താനാവുമെന്ന് റെയിൽവേ അറിയിച്ചു

ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലഖ്നൌ ഇതാദൃമായാണ് ഡിഫൻസ് എക്സ്പോയ്ക്ക് വേദിയാകുന്നത്

ഹിമാചൽ പ്രദേശിലും ജമ്മു കശ്മീരിലും അടുത്ത മൂന്നു ദിവസം മഞ്ഞുവീഴ്ചയും മഴയും ഉണ്ടാകാൻ സാധൃതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി കനത്ത മഴ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഹിമാചൽ പ്രദേശിലെ വിവിധയിടങ്ങളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു

ദേശീയ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ ഇപ്പോൾ പെയ്യുന്ന നേരിയ മഴ രണ്ടു ദിവസത്തിനകം ശക്തമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു

ദീർഷ്ദൂര ഉപരിതല വായു മിസൈൽ അസ്ത്ര മിസൈൽ ബ്രി എഫ് എസ് ആർ ആശ്ലേഷ ഭരണി തുടങ്ങിയ റഡാറുകൾ ് മിന്നി യു ജി വി ഉൾപ്പെടുന്ന റോബോട്ടുകൾ എന്നിവയാണ് പ്രദർശനത്തിലെ മുഖ്യ ആകർഷണങ്ങൾ പ്രപ്പദർശന വേദിയിൽ ഡി ആർ ഡി ഓ ശാസ്ത്രജ്ഞരുമായി സംവിദിക്കാനും കാഴ്ചക്കാർക്ക് അവസരമുണ്ട്

മൂന്ന് മത്സരങ്ങളുള്ള പരമ്പരയിലെ ഫൈനൽ ഈ മാസം പത്തിന് പൂനെയിൽ നടക്കും

ജസ്റ്റിസുമാരായ അരുൺ മിശ്ര യു

ലളിത് എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന കൽക്കട്ട ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കിയത്